ഭൂമിയിൽ സസ്യജന്തു ജാലങ്ങളുടെ അഭിവൃദ്ധി ജനങ്ങൾ കൂട്ടായി ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്പരിസ്ഥിതി ദിനത്തിൽ നഗരവനവത്ക്കരണ പരിപാടിക്ക് ്തുടക്കം

എൻ സുരക്ഷാ സമിതിയിൽ വീണ്ടും അംഗമാകുന്ന കാലയളവിൽ ഇന്ത്യ പ്രവർത്തിക്കുകയെന്ന് വിദേശകാരൃ മന്ത്രി എസ്

ഡോളർ സഹായധനം ഇന്തൃ പ്രഖ്യാപിച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ നഗര വനവത്ക്കരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു

പ്രകൃതിയിൽ സസ്യ ജന്തൂജാലങ്ങളുടെ അഭിവൃദ്ധി ജനങ്ങൾ കൂട്ടായി ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി

ലോക ജൈവവൈവിധൃത്തിൽ എട്ട് ശതമാനത്തോളം ഇന്ത്യ സംരക്ഷിക്കുന്നണ്ടെന്ന് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വെർച്ചൽ ആഘോഷ ചടങ്ങിൽ മന്ത്രി പ്രകാശ് ജാവദേക്കർ ചൂണ്ടിക്കാട്ടി പ്രകൃതിയെ സംരക്ഷിക്കുന്നവരെ പ്രകൃതിയും സംരക്ഷിക്കുമെന്നാണ് ഇന്ത്യാക്കാരുടെ വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു

വെൽച്ചൽ ആഘോഷ ചടങ്ങിൽ പരിസ്ഥിതി സഹമന്ത്രീ ബബുൽ സൂപ്രിയോ മഹാരാഷ്ട്ര വനം മന്ത്രി സഞ്ജയ് റാതോഡ് മുതിർന്ന ഉദ്യോഗസ്ഥർ യു എൻ പരിസ്ഥിതി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഏഷ്യാ പസഫിക് മേഖലയിൽ നിന്ന് ഇന്ത്യ മാത്രമേ മത്സരത്തിനുള്ളൂ എന്നതിനാൽ ഇന്ത്യ അംഗത്വം നേടാനാണ് സാധൃത ഇത് എട്ടാം തവണയാണ് ഇന്ത്യ സുരക്ഷാ സമിതിയിൽ അംഗമാകുക

ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അദ്ധ്യക്ഷത വഹിച്ച ആഗോള വാക്സിൻ വെർച്ചൽ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇക്കാര്യം അറിയിച്ചത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ ലോകത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ലോകം ഒരൊറ്റ കുടുംബം ആണെന്നാണ് ഇന്ത്യ പഠിപ്പിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു രാജ്യത്തെ ഗർഭിണികൾക്കും കുട്ടികൾക്കും വാക്സിൻ പരിരക്ഷ ഉറപ്പാക്കുന്ന മിഷൻ ഇന്ദ്രധനുഷ് തന്റെ സർക്കാർ നടപ്പിലാക്കിയ ് ആദ്യ പദ്ധതികളിൽ ഒന്നാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പ്രകാരമുള്ള ധനസഹ്ട്ടിയ്മാണിത്

കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഭീകരനെ ഏറ്റുമുട്ടലിൽ വധിച്ച പശ്ചാത്തലത്തിലാണിത് നുഴഞ്ഞുകയറിയ ്ഭീകരർ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുവെന്ന വിശ്വസനീയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിലെന്ന് പോലീസ് അറിയിച്ചു

കേന്ദ്ര ആഭ്യന്തരമന്ത്രലായം ജോയിന്റ് സെക്രട്ടറി അനുജ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘമാണ് നാശനഷ്ടം ഇന്നലെ കൊൽക്കത്തയിലെത്തിയത്

ഭരണാധികാരികളുമായി സംഘം കൂടിക്കാഴ്ച നടത്തും

എൽ

മോർബിയിൽ നിന്നുളള നിയമസഭാർഗ്ഗം ബ്രിജേഷ് മെർജയാണ് രാജിവച്ചത് ഇതോടെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ രാജിവച്ച കോൺഗ്രസ് നിയമസഭാംഗങ്ങളുടെ എണ്ണം മൂന്നായി

രോഗികളുടെ എണ്ണത്തിൽ അമേരിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം ആറ് ലക്ഷം കവിഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് ജി

വോയിസ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഉയർന്ന പരിഗണനയാണ് നൽകുന്നത് റെയിൽവേ ട്രാക്കൂകൾ നവീകരിക്കുകയും ട്രാക്കുകളുടെ അറ്റകുറ്റപണികൾ കൃത്യമായി നടത്തുകയും ചെയ്തിട്ടുണ്ട് സിഗ്നൽ സംവിധാനം കൂടൂതൽ കാര്യക്ഷമമാക്കി

ഇക്കാലയളവിൽ ട്രെയിൻ അപകടത്തിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ടില്ലെന്നും റെയിൽവേ അറിയിച്ചു കോച്ചുകളിലും സ്റ്റേഷനുകളിലും സി സി ടി

കളും സ്ഥാപിച്ചു കാവലില്ലാത്ത ലെവൽ ക്രോസുകൾ എല്ലാം ഒഴിവാക്കി

റെയിൽവേ സ്റ്റേഷനുകളും കോച്ചുകളും ശുചിത്വമുള്ളതാക്കാൻ പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്

സി